ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും വികസന കാര്യങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്നും പ്രധാ നമന്ത്രി അറിയിച്ചു പാർലമെന്റ് സമ്മേളനം സുഗമമാക്കുന്ന തിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്ത സർവ്വക്ഷിയോഗത്തിൽ പങ്കെടുത്തശേഷം ട്വിറ്ററിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് യോഗത്തിൽ പങ്കെടുത്ത കക്ഷിനേതാക്കൾ സമ്മേളന കാലത്ത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ യോഗ ത്തിൽ അറിയിച്ചതായി സ്പീക്കർ പിന്നീട് മാധ്യമങ്ങളെ അറി യിച്ചു സമ്മേളനം സുഗമമാക്കാമെന്ന് എല്ലാവരും ഉറപ്പു നൽകിയതായും സ്പീക്കർ പ്റഞ്ഞു

പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നില പാട് ച്ർച്ച് ചെയ്യാനാണ് യോഗം എന്നാൽ എന്ന് ഡി എ വിട്ട ശിവസേന യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടി നേതാവ് സഞ്ജയ് റാവത്ത് മുംബൈയിൽ അറിയി ച്ചു

കോഴിക്കോട്ട് പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന തല പ്രഖ്യാപനം നടത്തും വിദ്യാലയങ്ങൾ ഗവൺമെന്റ് ഓഫീസുകൾ തൊഴിൽശാ ലകൾ ക്ലബ്ബുകൾ റസിഡൻസ് അസോസിയേഷനുകൾ തുട ങ്ങിയവയെ യോജിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ബോധവത്ക്കരണത്തിനു പുറമെ വിമുക്തി സേനയുടെ രൂപീ കരണം കൌൺസിലിംഗ് സെന്ററുകളുടെ രൂപീകരണം തുട ങ്ങിയവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും

ഉദുമൽപെട്ട് പാലക്കാട് ലൈൻ തകരാറിലായാൽ കേരളം മുഴുവൻ ഇരുട്ടിലാകുമെന്ന അവസ്ഥ ഇതോടെ ഇല്ലാതാ കും

കൊച്ചി മംഗലാപുരം പ്രകൃതി വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് ഭൂമി നൽകിയ നാമമാത്ര ഭൂവുടമകൾക്ക് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജിന്റെ ഭാഗമായ ധനസഹായ വിതരണം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ടാങ്കർ ലോറികൾ വഴി ഗൃാസ് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ പദ്ധതി വഴി ഒഴിവാക്കാൻ കഴിയുമെന്നും ഭൂമിക്കടിയിൽ സ്ഥാപിക്കുന്ന പൈപ്പ് ലൈൻ ഏറെ സുരക്ഷിതമാണെന്നും മന്ത്രി പറഞ്ഞു

സ്ത്രീ പുരുഷ സമത്വം എല്ലാ രംഗത്തും ഉണ്ടാകണം എന്ന താണ് പാർട്ടി നിലപാട് എന്നാൽ അതത് കാലത്തെ നിയമ ങ്ങളുടെയും ചട്ടങ്ങളുടെയും കോടതിവിധികളുടെയും അടി സ്ഥാനത്തിലാണ് ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടതെന്നും സി പി ഐ എം വ്യക്തമാക്കി

ശബരിമലയിൽ സമാ ധാനം പുനഃസ്ഥാപിക്കണമെന്ന കോൺഗ്രസിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റത്തിലൂടെ സാധൂകരിക്കപ്പെ ട്ടിരിക്കുകയാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന വിശ്വാസ ധാരയും ഭക്തിയും കൂടി ചേർന്ന പുണ്യകാലമാണിതെന്ന് അദ്ദേഹം കോഴിക്കോട്ട പറഞ്ഞു ക്കകകകക ഭവ ന ര ഹി തർക്കായി സംസ്ഥാന ഗവൺമെൻ്റ് നടപ്പാക്കുന്ന ലൈഫ് മിഷനിൽ പങ്കാളിത്തരീതിയിൽ ഭവന ങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാകുന്ന തദ്ദേശസ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് ലൈഫ് മിഷൻ ചീഫ് എക്സിക്യു ട്ടീവ് ഓഫീസർ യു വി ജോസ് അറിയിച്ചു വർഷാവസാന ത്തോടെ രണ്ട് ലക്ഷം കുടുംബങ്ങ ളുടെ സ്വന്തം ഭവനമെന്ന സ്പ്നം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ് പദ്ധതിയുടെ മൂന്നാംഘട്ട പ്രവർത്തനങ്ങൾ വിശദീ കരിക്കാൻ വിളിച്ച എറണാകുളം ജില്ലയിലെ ഹൌസിംഗ് ഓഫീസർമാരുടെ യോത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇവരുടെ വിവരങ്ങൾ കുടുംബാംഗം ഡിസംബർ ഒൻപതിനകം ബന്ധപ്പെട്ട തദ്ദേശസ്ഥാപന സെക്ര ട്ടറിയെ അറിയിക്കണം മസ്റ്റർ ചെയ്യുന്നതിന് ഗുണഭോക്താവ് അക്ഷയ കേന്ദ്ര ത്തിൽ ഫീസ് അടയ്ക്കേണ്ടെന്നും മസ്റ്റർ ചെയ്യുന്നവർക്കു മാത്രമേ അടുത്ത ഗഡു മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ വെന്നും അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു

കാർ യാത്രക്കാരായ തിരൂർ ബി പി അങ്ങാടി സദേ ശികളായ അഹമ്മദ് ഫൈസൽ സുബൈദ നൌഫൽ എന്നി വരാണ് മരിച്ചത് പുളിക്കകടവ് ജംഗ്ഷനിൽ അർദ്ധരാത്രി ഇവർ സഞ്ചരിച്ച കാർ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയി ടിച്ചാണ് അപകടം

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വടംവലി വോളിബോൾ മത്സരങ്ങളോടെ ബീച്ച് ഗെയിംസിന് തുടക്കമാകും

പാലക്കാട് ഉപജില്ല രണ്ടും തൃത്താല ഉപജില്ല മൂന്നും സ്ഥാനം നേടി

ഭജനക്കുടിലുകളിൽ തെളിയിച്ച് ദീപം വ്രതാനുഷ്ഠാനങ്ങളോടെ പന്ത്രണ്ട് നാൾ ഭജനം പാർക്കുന്നതിന് ഇക്കുറിയും അനവധി പേർ എത്തിയിട്ടുണ്ട് വൃശ്ചികം പന്ത്രണ്ടിന് പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തോടെ ഭജനം പാർക്കൽ അവസാനിക്കും

മികച്ച അമേചർ നാടകത്തിന് നൽകുന്ന പുർസ്കാർം തൃശൂർ പഞ്ചമി തിയറ്റേഴ്സിന്റെ മാളിക്ക് സമ്മാനിച്ചു മികച്ച നടനുള്ള പുരസ്കാരം കെ

ഹരിദാസും മികച്ച നടിയ്ക്കുള്ള പുരസ്കാരം സി

മേഘയും ഏറ്റുവാങ്ങി ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട് മലയാളികൾ മടങ്ങി വരുന്നത് കേരളത്തിന് ഭീഷണിയാണെന്ന് മന്ത്രി ഡോ

വ്യാപാരി വൃവസായി സമതി ആലപ്പുഴജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ്

രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോൾ

മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ജില്ലാതല സഹകരണ വാരാഘോഷം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇടുക്കി ആമപ്പാറ ജാലകം ഇക്കോപാർക്ക് പദ്ധതിയുടെ നിർമാണ ഉദ്ഘാടനം നിർവ്വഹിക്കുക യായിരുന്നു മന്ത്രി ജീപ്പ് സഫാരിക്ക് പേരുകേട്ട ആമപ്പാറയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന തിനാണ് ജാലകം ഇക്കോപാർക്ക് നിർമിക്കുന്നത്

കുമളിയിൽ നിറവ് ഗോത്ര കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലലലലലല ജില്ലാ ഭരണകൂടത്തിന്റെയും മലപ്പുറം നഗരസഭയുടെയും സംയുക്ത സംരംഭമായ പ്ലാസ്റ്റിക് തരൂ ഭക്ഷണം തരാം പദ്ധതിക്ക് തുടക്കമായി കൃാൻസർ രോഗത്തിനടക്കം കാരണമാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിലെത്തിച്ചാൽ പകരം ഭക്ഷണ പാക്കറ്റ് നൽകുന്നതാണ് പദ്ധതി ഉപരിതലം നവീകരിക്കുന്ന പണികൾ നടക്കുന്ന കുറ്റിപ്പുറം പാലത്തിൽ ഗതാഗതനിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന യാത്രാവാഹനങ്ങൾ പാലത്തിന്റെ ഒരു വശത്തുകൂടി കടത്തിവിടും തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നിരോധനം തുടരും രാത്രി ഒമ്പത് മുതൽ രാവിലെ ആറുവരെയാണ് നിയന്ത്രണം